കൊവിഡ് ലക്ഷണവുമായി ആറു പേരെ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഒട്ടേറെ പുരോഗമന നടപടികൾ പ്രഖ്യാപനത്തിലുണ്ടെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു ഭക്ഷ്യ സുരക്ഷയും കർഷകർക്കും തെരുവ് കച്ചവടക്കാർക്കും ലഭിക്കുന്ന വായ്പകളും പ്രഖ്യാപനം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രുമ കർഷകരുടെ വായ്പയ്ക്ക് പ്രഖ്യാപിച്ച രാജ്യത്തെ ആറുമാസത്തെ മോറട്ടോറിയം കാലയളവിലെ പലിശ എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മന്ത്രി ഡോ

തോമസ് ഐസക്ക് ആവശ്യപ്പെട്ടു കർഷകരുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിക്കാൻ യാതൊന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച പാക്കേജിലില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി

രുമ സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിന് പ്രത്യേക പാക്കേജായ വ്യവസായ ഭദ്രതയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

പാക്കേജ് പ്രകാരം നിലവിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകുന്ന അധിക വായ്പയ്ക്ക് മാർജിൻ മണി സഹായവും പലിശ ഇളവും അനുവദിക്കും

ഐ

സിയും കിൻഫ്രയും വായ്പാ കുടിശികയ്ക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ നടപ്പാക്കും കേന്ദ്രപാക്കേജിൽ മൊറട്ടോറിയം കാലത്ത് പലിശ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കാൻ തയാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ വ്യാപ്യതരാവുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വ്യക്തമായ പദ്ധതിയൊരുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു രാമ കോവിഡ് പ്രതിരോധം മുൻനിർത്തി പൊതുസമൂഹത്തിന്റെ ജീവിതശൈലി മാറണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

തിക്കും തിരക്കും ഉണ്ടാകാത്തവിധം കച്ചവടസ്ഥാപനങ്ങളിലും പൊതുഗതാഗത സൌകര്യങ്ങളിലും ചന്തകളിലും ഒക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാവണം

ഒയിലെ വിദഗ്ദ്ധർ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോഴിക്കോട്ട് ഇറങ്ങിയ യാത്രക്കാരിൽ കോവിഡ് രോഗലക്ഷണം കണ്ടെത്തിയ ആറുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനത്ത സുരക്ഷാ പരിശോധനയാണ് യാത്രക്കാർക്കായി മൂന്ന് സ്റ്റേഷനുകളിലും ഒരുക്കിയിരുന്നത്

മറ്റു ജില്ലകളിലേക്ക് പോകേണ്ടവരെ പ്രത്യേകം സജ്ജമാക്കിയ കെ

സി ബസ്സുകളിൽ യാത്രയാക്കി

എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് ട്രെയിൻ നിർത്തുക

മുത്തങ്ങ കുമിളി ചെക്ക് പോസ്റ്റ് വഴി രണ്ടു വീതവും വാളയാർ വഴി നാലും കാസർഗോഡ് മഞ്ചേശ്വരം വഴി ഓരോ ബസ്സുമാണ് എത്തുന്നത്

സി സി ആവശ്യപ്രകാരം കർണ്ണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കേരളത്തിലേക്ക് ബസുകൾ ക്രമീകരിച്ച് നൽകുന്നത്

കാസർഗോഡ് ജില്ലയിൽ പത്തും മലപ്പുറം ജില്ലയിൽ അഞ്ചും പാലക്കാട് വയനാട് ജില്ലകളിൽ മൂന്നു പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ രണ്ടു പേർക്കും പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു രോഗ ബാധിതരിൽ ഏഴുപേർ വിദേശത്ത് നിന്നും വന്നവരാണ് നാലു പേർ മുംബൈയിൽ നിന്നും രണ്ടു പേർ ചെന്നൈയിൽ നിന്നും ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും വന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ഏഴു പേർക്കും വയനാട് ജില്ലയിലെ മൂന്നു പേർക്കും പാലക്കാട് ജില്ലയിലെ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

നാലുപേർ മറ്റു ജില്ലകളിൽ ചികിത്സയിലുണ്ട് രുമ വയനാട് ജില്ലയിൽ മാനന്തവാടി നഗരസഭയിൽ ആദ്യം രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ മകനും മരുമകനും ഒരു പൊലീസുകാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത് എല്ലാവർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത്

വോയ്സ് ദേദ പാലക്കാട് ജില്ലയിൽ ഇന്നലെ ചെന്നൈയിൽ നിന്നെത്തിയ കടമ്പഴിപ്പുറം സ്വദേശി കൊല്ലങ്കോട് ചുള്ളിയാർമേട് സ്വദേശി ദമാമിൽ നിന്ന് എറണാകുളത്തെത്തിയ പാലക്കാട് സ്വദേശി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ആറായി

രുര ഇടുക്കിയിൽ കരുണാപുരം സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് അതീവ ജാഗ്രത

ഒരു സമൂഹത്തിന്റെയാകെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന് റാണ്ടമായി സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുന്ന സെന്റിനൽ സർവെയ്ലൻസ് പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് രുഭ ലോകത്ത് കൊവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു

പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്കൂളുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നേരിട്ടെത്തി പ്രവേശനം നേടാം

രുദ ഈ വർഷം സാധാരണനിലയിൽ കവിഞ്ഞ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ വിദഗ്ദ്ധരുടെ സൂചന മുന്നിൽക്കണ്ട് അടിയന്തര തയ്യാറെടുപ്പ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാലവർഷം സാധാരണ നിലയിലായാൽതന്നെ ആഗസ്റ്റിൽ അതിവർഷം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്

ഈ സാഹചര്യം മുന്നിൽക്കണ്ട് ഗുരുതര കാലവർഷക്കെടുതി നേരിടാൻ പദ്ധതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

നിലവിൽ എണ്ണൂറ് പേർക്കാണ് പ്രവേശനം നൽകുന്നത്